പൌരത്വ ഭേദഗതി നിയമത്തിലും ദേശീയ പ്ലൌരത്വ രജിസ്റ്ററിലും ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ജീനത ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രീപ്പ്ന്തേന്ദ്രമോദി

ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്

പോസ്റ്റൽബാലറ്റുകളാണ് ആദ്യം എണ്ണുക തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണും

വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്

സംസ്ഥാനത്ത് അധികാരം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി

ദേശീയ പൌരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അയൽരാജ്യങ്ങളിൽ നിന്നും മതപീഡനത്തിന് ഇരയായി ഇന്ത്യയിലേക്ക് വന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പൌരത്വ ഭേദഗതി നിയമം പ്രതിപക്ഷം രാജ്യത്തെ ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നും മതപീഡനത്തിന് ഇരയായി ഇന്ത്യയിൽ എത്തിയ ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകണമെന്ന് മുൻപ്രധാനമന്ത്രി മൻമോഹൻസിങ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനം വെളിവാക്കാനുള്ള അവസരമാണ് രാഷ്ട്രീയ വൈര്യത്തിലൂടെ നഷ്ടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു രാജ്യത്ത് അഭയാർത്ഥികളുടെ തടങ്കൽ പാളയങ്ങൾ ഇല്ലെന്നും അത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പ്രതിപക്ഷം വോട്ടുബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി രാജ്യത്തെ വിഭജിക്കാനുള്ള ഇത്തരം പ്രചരണങ്ങൾക്ക് ഇരയാകരുതെന്ന് രാജ്യത്തെ യുവാക്കളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു

എ ഗവൺമെന്റ് നടപ്പിലാക്കിയ നിരവധി വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ച പ്രധാനമന്ത്രി ഇവയുടെ ഗുണഭോക്താക്കളോട് ജാതിയോ മതമോ ചോദിച്ചിട്ടില്ലെന്നും പറഞ്ഞു

ഉജ്ജ്വല യോജനയ്ക്കു കീഴിൽ എട്ട് കോടി ഗ്യാസ് കണക്ഷനുകൾ ലഭൃമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളിൽ പോലീസിനെ ആക്രമിക്കുന്നത് ശരിയല്ലെന്നും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ പോലീസ് ആരുടെയും മതം ചോദിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാനാണ് പുതിയു സ്ജ്ജീകരണം

ജെ

ദേശീയ വർക്കിങ്ങ് പ്രസിഡന്റ് ജെ

പുതിയ നിയമ ഭേദഗതിയെ പിന്തുണക്കുന്നതിനായി വ്യാപകമായ പ്രചാരണ പരിപാടികളാണ് ബി ജെ

നിയമ ഭേദഗതി നടപ്പിലാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും അഭിനന്ദനമറിയിക്കാ നാണ് റാലികൾ സംഘടിപ്പിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് കൊൽക്കത്തയിൽ ഇന്ന് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നുണ്ട്

നടപടികൾക്ക് തുടക്കം കുറിച്ചതായും നഷ്ടപരിഹാരം അടയ്ക്കാത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും അദ്ദേഹം അറിയിച്ചു പൊതുമുതലുകളുടെ നഷ്ടം കലാപകാരികളിൽ നിന്നും ഈടാക്കണമെന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവുണ്ട്

ജെ

ഇന്ന് വൈകിട്ട് മൂന്ന് മണി മുതൽ ആലപ്പുഴ ഇ

എസ് സ്റ്റേഡിയത്തിലും അതിനുശേഷം ചേന്നങ്കരിയിലെ വീട്ടിലും പൊതുദർശനത്തിനുവയ്ക്കും

ഉപരാഷ്ട്രപതി എം

ബോളിവുഡ് താരങ്ങളായു ആയുഷ്മാൻ ഖുറാനയും വിക്കി കൌശലുമാണ് മികച്ച നടനുള്ള അവാര്യ് പ്ഷങ്കിട്ടത്

സുരേഖ സിക്രി സ്വാനന്ദ് കിർക്കിരെ എന്നിവർക്കാണ് സഹതാര പുരസ്കാരങ്ങൾ

ഇന്ത്യക്കാർ സുരക്ഷിതരാണ്

സംഭവം നടന്ന ഉടൻ ഇന്ത്യ നൈജീരിയയുമായി നിരന്തരം ബന്ധപ്പെട്ട് ഇവരുടെ മോചനത്തിനായി ശ്രമം തുടരുകയായിരുന്നു

എം കെ നടത്തുന്ന റാലിയിൽ പൊതു മുതൽ നശിപ്പിക്കുന്നത് തടയാൻ മുൻകരുതലെടുക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് പോലീസിനോട് നിർദ്ദേശിച്ചു ഏതെങ്കിലും തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ പാർട്ടി നേതൃത്വം ഉത്തരവാദിയാകുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പു നൽകി

ചെന്നൈയിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന റാലി തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്നലെ ജസ്റ്റിസുമാരായ വൈദ്യനാഥൻ ആഷ എന്നിവരാണ് പരിഗണിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജിയ്

കട്ടകിലെ ബരാബതി സ്റ്റേഡിയത്തിൽ രൂടന്ന് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസീനെ നാല് വിക്കറ്റിന് ഷ്രാജ്യപ്പെടുത്തി വിൻഡീസിനെതിരെയുള്ള ഇന്ത്യൻ ടീമിന്റെ തുടർച്ചയായപ്രപ്പെട്ട് മത് പരമ്പര വിജയമാണിത്

രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദി സീരീസ്

ശരിയല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് ഗവൺമെന്റ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു

ഇതുവഴി ആർക്കും പൌരത്വം നഷ്ടപ്പെടില്ല പൌരത്വം തെളിയിക്കാനുള്ള രേഖകൾ എത്രയും പെട്ടെന്ന് ശേഖരിക്കണമെന്നും ഇല്ലെങ്കിൽ നാടുകടത്തപ്പെടുമെന്നുമുള്ള ധാരണ തെറ്റാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് പൌരത്വ ഭേദഗതി നിയമം ബാധകമായിട്ടുള്ളത് ദേശവ്യാപകമായി എൻ

സി നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഒരു ഇന്ത്യൻ പൌരനും ഒരുതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത വിധത്തിലായിരിക്കും മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കപ്പെടുകയെന്നും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു

വ്യവസായമന്ത്രി ഇ